മുൻനിരയിലെത്താൻ അധ്യാപകർ പിന്തുണ നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഫോറത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്ര മോഹൻ

റഷ്യയിലെ വ്ളാഡിവസ്റ്റോക്കിൽ നടക്കുന്ന ക്വിഴുക്ക്ൻ സാമ്പത്തിക ഫോറത്തിന്റെ അഞ്ചാമത് സമ്മേളനം ഏഷ്യ പസഫിക് മേഖ്ലിയില്ല അന്താരാഷ്ട്ര സഹകരണം വിപുലമാക്കാനുള്ള ചർച്ചകൾക്ക് വേദിയുട്കുട്ട് ജപ്പാൻ മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും മുഗോളിയൻ പ്രസിഡന്റുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി

ഇന്ത്യ റഷ്യ സഹകരണം പുതിയ തലത്തിൽ എത്തിക്കുകയായിരുന്നു ചർച്ചയുടെ ലക്ഷ്യമെന്ന് പിന്നീട് സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു വ്യാപാരം സുരക്ഷ പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഏതൊരു രാജ്യത്തിന്റെയും ആഭ്യന്തര വിഷയങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകുന്നതിന് ഇരു രാജ്യങ്ങളും എതിരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജമ്മുകാശ്മീർ വിഷയത്തിൽഇന്ത്യസ്വീകരിച്ച നിലപാടിനെ റഷ്യ പിന്തുണച്ചു കാശ്മീരിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടി ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു

ഇന്ത്യയുടെ ഗഗൻയാൻ ബഹിരാകാശ പദ്ധതിയ്ക്ക് എല്ലാ സഹായവും നൽകുമെന്നും ആണവ വിതരണ ഗ്രൂപ്പിൽ ഇന്ത്യയുടെ അംഗത്വത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നതായും റഷ്യഅറിയിച്ചു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇന്തോ പസഫിക് മേഖലയുടെ അഭിവൃദ്ധിയും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഇരു നേതാക്കളും പറഞ്ഞു രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടന്നതായി വിദേശകാര്യ സെക്രട്ടറി ് വിജയ് ഗോഖലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഡിസംബറിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്തോ ജപ്പാൻ ഉഭയകക്ഷി ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള ചർച്ചകൾക്കും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ തുടക്കമായതായി ശ്രീ

മലേഷ്യൻ പ്രധാനമന്ത്രി ഡോ

വ്യാപാരം തീവ്രവാദ വിരുദ്ധപ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി മംഗോളിയൻ പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും

ഈ അവസരത്തിൽ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ ്ജസ്റ്റിസുമാരായ ആർ

അന്വേഷണ ഏജൻസിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണമെന്നും സുപ്രീംകോടതി പറഞ്ഞു

മരിച്ചവരുടെകുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷംരൂപ വീതവുംഗുരുതരമായി പരിക്കേറ്റവർക്ക് അൻപതിനായിരംരൂപ വീതവുംപഞ്ചാബ്ഗവൺമെന്റ്സഹായധനം പ്രഖ്യാപിച്ചു

അപകടസ്ഥലത്ത്രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും ശ്രീ

ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയൂട്ട അധ്യാപകനും പണ്ഡിതനുമായഡോ സർവ്വേപ്പള്ളി രാധാകൃഷ്ണന്റെജന്മവാർഷിക ദിനമായസെപ്റ്റംബർഅഞ്ച്ആണ്എല്ലാവർഷവുംദേശീയ അധ്യാപക ദിനമായിആചരിക്കുന്നത് കൂടുതൽവിവരങ്ങളുമായി നരേന്ദ്ര മോഹൻ

സ്വഭാവ രൂപീകരണത്തിന്റെ അടിസ്ഥാനം സ്കൂളികളിലാണ് തുടങ്ങുന്നതെന്നും വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ രക്ഷിതാക്കളെ പോലെയാണെന്നും ശ്രീ

അടിസ്ഥാന ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കണമെന്നുംരാഷ്ട്രപതി അധ്യാപകരോട്ആഹ്വാനം ചെയ്തു അധ്യാപകർ കർമ്മത്തേക്കാൾ ശ്രദ്ധ നൽകേണ്ടത്കർമ്മ ഫലത്തിനാകണമെന്ന് അധ്യാപക ദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭിപ്രായപ്പെട്ടു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളെ നിവാരണം ചെയ്യുന്നതിന് അധ്യാപകരുടെ സജീവ പിന്തുണയും പങ്കാളിത്തവും ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇത് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നല്കിയട്വിറ്റർസന്ദേശത്തിൽ അമ്മയെ സ്മരിക്കുകയായിരുന്നു ശ്രീ

ഒരു ക്ലാസ്സിൽ മികവുള്ള വിദ്യാർത്ഥികളും ശരാശ്യരിക്ക് താഴെയുള്ള വിദ്യാർത്ഥികളും ഉണ്ടാകും എന്നാൽ ശരാശരിയ്ക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അദ്ധ്യാപകർ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതെന്നും മുഖ്യമ്ത്രി പറഞ്ഞു

ജമ്മു കശ്മീരിൽ നടപ്പാക്കാനാവുന്ന പുതിയ പരിഷ്ക്കാരങ്ങളും രീതികളും പരിശോധിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം സന്ദർശനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കശ്മീർ വികസന കാര്യങ്ങൾ ചർച്ച് ചെയ്തു അതേസമയം ജമ്മുകാശ്മീർ ഗവൺമെന്റിന് അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകാമെന്ന് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് ഉറപ്പു നൽകി

മെച്ചപ്പെട്ട ചികിത്സയ്ക്കായിഅദ്ദേഹത്തെ എയിംസിലേക്ക്മാറ്റുന്നതിൽ തനിക്ക്എതിർപ്പില്ലെന്ന്സിപിഐഎം നേതാവ്സീതാറാംയെച്ചൂരിസുപ്രീംകോടതിയെഅറിയിച്ചു രോഗബാധിതനായ പാർട്ടിഅംഗംതരിഗാമിയെ ജമ്മുകൾമീരിൽ സന്ദർശിക്കുന്നതിന് ശ്രീ യെച്ചൂരിക്ക്സുപ്രീംകോടതിനേരത്തെ അനുമതി നൽകിയിരുന്നു സന്ദർശനം ജമ്മുകശ്മീരിലെ സ്ഥിതിവഷളാക്കുമെന്ന കേന്ദ്രത്തിന്റെവാദംതള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നുസുപ്രീംകോടതിസന്ദർശനാനുമതി നൽകിയത്

സംസ്ഥാനത്തിന്റെ സമാധാനവും സുരക്ഷിതത്വവും വികസനവും ഉറപ്പുപ്പരുത്താൻ യുവാക്കൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ട്ടിക്കൂക എന്ന ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായാണ് സേനാ റിക്രൂട്ട്മെന്റ് റാലീ സംഘടിപ്പിച്ചിരിക്കുന്നത്

ചിത്രങ്ങളെടുത്ത് ഭൂമിയിലെ കൺട്രോൺ റൂമിലേക്ക് അയച്ച് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തീരുമാനം എടുക്കുകയുമാണ് ചെയ്യുന്നത് ഇതിനായി ആധുനിക സെൻസറുകളും സ്വയം നിയന്ത്രിത സംവിധാനങ്ങളും വിക്രം ലാന്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട്

ഓപ്പൺ സെമിയിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ബിയാൻകാ ബെലിന്റാ ബെൻസിസിനെയാണ് സെമിയിൽ ബിയൻകാ നേരിടുന്നത്